അനുശാസിക്കുന്ന പ്രതിബൃദ്ധ്യ്ക്ൾക്കും അപ്പുറമുള്ള നടപടികൾ കൈക്കൊണ്ടതായി പ്രപ്ധാനമന്ത്രി നരേന്ദ്രമോദി

നാല് ജില്ലകൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക് ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകൾ

ഇന്ന് രണ്ട് മത്സരങ്ങൾ

സാർവത്രിക ആരോഗൃ പരിരക്ഷാ ദിനവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു ഡോക്ടർ ഹർഷ്വർധൻ ദേശീയ കുടുംബാരോഗ്യ സർവ്വയുടെ അഞ്ചാം പതിപ്പും മന്ത്രി പ്രകാശനം ചെയ്തു

ക്ടേന്ദ്രി്സർക്കാർ കൊണ്ടു വന്ന പരിഷ്കാരങ്ങളുടെ നേട്ടമുണ്ടാക്കാൻ തുടിങ്ങി പത്താമത് വിജ്ഞാന വിനിമയ ഉച്ചുകോടിയിൽ സംസാരിച്ച കൃഷിമന്ത്രി രാജ്യത്തിന്റെ വാഗ്ധാനമായ കാർഷിക മേഖലയുടെ ഉന്നമനത്തിനായി പുതുതലമുറയിലെ ആളുകളെ ഇതിലേക്ക് ആകർഷിക്കാൻ ലക്ഷൃമിടുന്നതായും പറഞ്ഞു അതേസമയം ഹരിയാനയിൽ നിന്നുള്ള കർഷകനേതാക്കൾ ഇന്നലെ ന്യൂഡൽഹിയിൽ കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമറിനെ കണ്ടിരുന്നു

വ്യവസായ പ്രമുഖരുടേയും സാമ്പത്തിക വിദഗ്ധരുടേയും കൂട്ടായ്മയായ ഫിക്കി യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

നിലവിലുള്ള പദ്ധതികൾ പ്രകാരം കർഷകരിൽ നിന്ന് ഖാരിഫ് വിളകൾ മിനിമം താങ്ങുവിലയ്ക്ക് വാങ്ങുന്നത് തുടരുകയാണെന്ന് കേന്ദ്ര കൃഷി മന്ത്രാലയം അറിയിച്ചു

നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പത്തോളം റോക്കറ്റാക്രമണങ്ങളാണ് സംഭവത്തിൽ നടന്നത്

സൈനൃത്തിന്റെ പ്രത്യാക്രമണത്തിൽ പ്രിഅക്രമികളിൽ ചിലർ പിൻവാങ്ങിയതായാണ് സൂചന